കഴിഞ്ഞ ആഴ്ച ജമ്മുകാശ്മീരിലെ സോപ്പോറിൽ ആക്രമണം നടത്തിയ ലഷ്കർ ഈ തൊയ്ബ ഭീകരൻ ആസിഫ് ഭട്ടിനെ സുരക്ഷാസേനാ വിക്വരുത്തി

ബംഗ്ലാദേശിലെ രോഹിങ്ക്യാ അഭയാർത്ഥി കൃാമ്പിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ഗവൺമെന്റ് നിർത്തിവച്ചു

സമത്വത്തിന്റെയും സാഹോദരൃത്തിന്റെയും സന്ദേശമുണർത്തി മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു

ഉത്തർ പ്രദേശിലെ മഥുരയിൽ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

വോയ്സ് പ്രകൃതിയും സാമ്പത്തിക വികസ്യമ്പുര് കന്നുകാലി വികസനവും എല്ലാം സന്തുലിതമാകുന്ന ഒരു അവ്രസ്ഥ കൈവരിച്ച് ശക്തമായ ഒരു പുതിയ ഇന്ത്യ എന്ന് ക്കാഴ്ചപ്പാടോടെയാണ് രാജ്യം മുന്നേറുന്നതെന്ന് പ്രധാനമ്പ്രി നരേന്ദ്രമോദി പറഞ്ഞു ഉത്തർ പ്രദേശിലെ മഥുരയിൽ നിരവ്ധി പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച ശേഷം സ്ച്ച്ഭാരത് ജൽ ജീവൻ ദൌത്യം കാർഷിക കന്നുകാലി പരിപാലന പദ്ധതി തുടങ്ങിയവയാണ് മഥുരയിൽ ആരംഭിച്ച പുതിയ പദ്ധതികൾ കാർഷിക രംഗത്ത് ഒരു പുത്തൻ സമീപന രീതിയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഗവൺമെന്റ് നടപ്പാക്കിയത്

ഈ വർഷം ഗാന്ധിജയന്തി ദിനം മുതൽ രാജ്യത്തെ എല്ലാ ജനങ്ങളും തങ്ങളുടെ വീടും പരിസരവും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉല്പന്നങ്ങളിൽ നിന്നും മുക്തമാകണം ഇൌ പ്രചാരണത്തിൽ എല്ലാ സ്വയംസഹായ സംഘങ്ങൾ ഓഫീസുകൾ പൊതുസമൂഹം സാമൂഹ്യ സംഘടനകൾ യുവജന സംഘടനകൾ വനിതാ സംഘടനകൾ സ്കൂളുകൾ കോളേജുകൾ ഗവൺമെന്റ് സ്വകാര്യ ഓഫീസുകൾ എന്നിവയെല്ലാം പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദേശീയ വളർത്തുമൃഗ രോഗ നിയന്ത്രണ പരിപാടിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു കന്നുകാലികളിലെ കുളമ്പുരോഗവും വായിലുണ്ടാകുന്ന രോഗങ്ങളും നിർമാർജ്ജനം ചെയ്യുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ദേശീയ കൃത്രിമ ബീജസങ്കലന പരിപാടിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പശു ആരോഗ്യ മേളയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഈ നിയമ പ്രകാരം ഉപഭോക്തൃ സംരക്ഷണ് അതോറിട്ടിയെ ഉപഭോക്തൃ താത്പര്യങ്ങൾക്കായി ശുക്തപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ നിയമ പ്രകാരൂ ഉപഭോക്താവിന് ഏതെങ്കിലും ഉൽപന്നം വിറ്റതിന് ശേഷം മാത്ര്മല്ല് വാങ്ങുന്നതിന് മുമ്പും അതോറിട്ടിക്ക് പരാതി നൽകാം

ഡി എ

അലഹബാദിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നിലവിൽ പ്രധാനമന്ത്രിയുടെ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഡോ മിശ്ര പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന നൃപേന്ദ്ര മിശ്ര സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ഡോ

രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് രാവിലെ സോപ്പോറിലെ നൂർബാഗ് മേഖലയിൽ പോലീസും സുരക്ഷാസേനയും നട്തിയ പരിശോധനയിലാണ് ആസിഫ് മഗ്ബൂൾ ഭട്ട് എന്നയാളിനെ വെടിവെച്ചുവീഴ്ത്തിയത്

കേസിൽ കഴിഞ്ഞ മാസമാണ് സിബിഐ അദ്ദേഹത്തെ അറസ്റ്റ് ചെയതത് ചിദംബരത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഗൌരവമുള്ളതായതിനാൽ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ വിചാരണകോടതി നേരത്തെ തീരുമാനിക്കുകയായിരുന്നു

പ്രത്യേക ജഡ്ജി അർവിന്ദ് കുമാർ രതുൽപുരിയെ അഞ്ച് ദിവസം കൂടി ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി നൽകുകയായിരുന്നു

ഔഷധ വ്യാപാരം ആരോഗ്യ സംഭക്ഷണം ജൈവ സാങ്കോതികവിദ്യ ധനകാര്യം വിനോദസഞ്ചാരം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്കും ഐസ്ലാന്റിനും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭക്ഷ്യ ഉൽപാദന രാജ്യമായ ഇന്ത്യയുമായി ഐസ്ലാന്റിന് സാങ്കേതികവിദൃ കൈമാറുവാനും നിക്ഷേപം നടത്തുവാനും അവസരമുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു

ഏതു വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യയ്ക്ക് കെൽപുണ്ടെന്നും പ്രധാനമനത്രി കൂട്ടിചേർത്തു

രാജ്യാതിർത്തികൾ ഭേദിച്ച് പ്രചരിക്കുന്ന ഒരു പ്രവണതയായി ഭീകര പ്രവർത്തനം ആഗോള തലത്തിൽ വളർന്നു വരികയാണ്

ആക്രമണത്തിൽ മൂവായിരത്തോളം ആളുകൾ മരിക്കുകയും ആറായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു

സമത്യ സുന്ദരമായ ഭൂതകാലത്തിന്റെ ഗൃഹാതുരത്വമുണർത്തുന്ന സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ആഘോഷമാണ് മലയാളിക്ക് തിരുവോണം പ്രളയക്കെടുതികളും പ്രകൃതിക്ഷോഭങ്ങളും ഓണത്തിന്റെ നിറം കെടുത്തിയിട്ടില്ല

പർമ്പർ സമനിലയിലാക്കുക എന്ന ലക്ഷ്യമാണ് ഈ വർഷം ലോകകപ്പ് നേടിയ ഇംഗ്ലണ്ടിന്റെ മുന്നിൽ ഉള്ളത്